നടക്കാനിരുന്ന ഇന്തൃ യൂറോപൃൻ യൂണിയൻ ഉച്ചകോടി മാറ്റിവച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസൽസില്ലേയ്ക്കില്ല

മാരെ സ്പീക്കർ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു

ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടം

എന്നാൽ യാത്രയ്ക്ക് അനുയോജ്യമായ സമയമല്ല ഇതെന്നാണ് ഇരു രാജ്യങ്ങളിലേയും ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം അതിനാൽ ഉച്ചകോടിക്ക് സൌകര്യപ്രധമായ മറ്റൊരു തീയതി തീരുമാനിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ് കുമാർ അറിയിച്ചു ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സഹകരണം ശക്തമായി തന്നെ തുടരും അതിനിടെ ഇറാനിലുള്ള ഇന്ത്യക്കാർക്ക് ആർക്കും കൊറോണ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം അറിയിച്ചു ബംഗബന്ധു ഷേഖ് മുജീബുർ റഹ്മാന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന ക്ഷണിച്ചിരുന്നു

ഡൽഹി സംഘർഷത്തെ കുറിച്ചുള്ള ടർക്കി പ്രസിഡന്റ് റസബ് തയിബ്ബ് എർദോഗന്റെ പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അജ യിൽ ഉൾപ്പെടുന്നത് മാത്രമാണെന്നും ശ്രീ

അഫ്ഗാനിസ്ഥാനിൽ സമാധാനം പുലർത്താനും ആ രാജൃത്തിന്റെ വികസനത്തിനും ഇന്തൃ എന്നും സഹകരിക്കും കാ ്ല തുറമുഖത്ത് പിടിച്ചിട്ടിരിക്കുന്ന ചൈനീസ് കപ്പലായ ഡാ ചു യാൻ സംബന്ധിച്ച ചോദൃങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി

അതേ തുടർന്നാണ് നടപടി സ്വീകരിച്ചത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കേന്ദ്ര മന്ത്രിതല സംഘവും ആരോഗ്യ മന്ത്രാല്യവും കാര്യങ്ങൾ നിരന്തരം വിലയിരുത്തി വരുകയാണ്

എല്ലാ വിമാന്ത്താവളങ്ങളിലും യാത്രക്കാരെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു ് ബോധവൽക്കരണത്തിനും പ്രതിരോധ നടപടികൾക്കുമായി എല്ലാ സംസ്ഥാനങ്ങൾക്കും ആശുപത്രികൾക്കും ദേശീയതലത്തിൽ ശില്പശാല സംഘടിപ്പിക്കും നിരീക്ഷണം സാമ്പിൾ പരിശോധന ആരോഗ്യ സംവിധാനങ്ങൾ തുടങ്ങി വൈറസ് ബാധയെ നേരിടുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഗവൺമെന്റ സജ്ജമാക്കിയിട്ടു ് മാസ്കുകളും മുഖാവരണങ്ങളും അടക്കമുള്ള മെഡിക്കൽ ഉത്പന്നങ്ങളുടെ കയറ്റുമതി കർശനമായി നിരോധിച്ചിട്ടുടെ ന്നും ഇവയുടെ ശേഖരം രാജ്യത്ത് ആവശ്യത്തിനു ന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രി ഹർഷ് വർദ്ധൻ രാജ്യസഭയെ അറിയിച്ചു

സർക്കാർ എയ്ഡഡ് സ്വകാര്യ എം

കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മാനവ വിഭവശേഷി മന്ത്രാലയം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവയുമായി സഹകരിച്ചാണ് ഇത് നടപ്പാക്കുന്നത്

പനി ചുമ ശ്വാസതടസ്സം എന്നീ രോഗലക്ഷണങ്ങൾ ഉള്ളവർ എത്രയും വേഗം ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടണം

മാരെ സ്പീക്കർ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഡൽഹി സംഘർഷം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ കഴിഞ്ഞ ദിവസമു ായ ബഹളത്തെ തുടർന്നാണ് നടപടി

ഈ അംഗങ്ങൾ സ്ഥഭയോട് ബഹുമാന കുറവ് കാണിച്ചുവെന്ന് അദ്ദേഹം ആരോപ്പിച്ചു്

ഗൌരവ് ഗൌഗോ്യി ഗുർജീത് സിംഗ് ഔജില മാണിക്കം ടാഗോർ എന്നിവരെയും കേരളത്തിൽ നിന്നുള്ള എം പിമാരായ ടി എൻ പ്രതാപൻ ഡീൻ കുര്യാക്കോസ് രാജ്മോഹൻ ഉണ്ണിത്താൻ ബെന്നി ബെഹന്നാൻ എന്നിവരെയുമാണ് സസ്പെൻഡ് ചെയ്തത് ഉത്തരവ് വായിച്ച ഉടനെ ഈ ഏഴ് പേരോടും സഭ വിട്ട് പുറത്ത് പോകാൻ സ്പീക്കർ ആവശ്യപ്പെട്ടു ഈ സമ്മേളനം അവസാനിക്കുന്നതുവരെയാണ് നടപടി

ഇതിന് പിന്നാലെയാണ് മോശം പെരുമാറ്റത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഭരണപക്ഷം രംഗത്തെത്തിയത്

എന്നാൽ ഇത് അംഗീകരിക്കാതെ പ്രതിപക്ഷം ബഹളം തുടർന്നതിനാൽ ലോക്സഭ ഇന്നത്തേയ്ക്ക് പിരിയുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

കേന്ദ്ര ആരോഗൃമന്ത്രി ഹർഷവർദ്ധൻ കൊറോണ വൈറസിനെക്കുറിച്ച് പ്രസ്താവന നടത്തുകയും ചില അംഗങ്ങൾ ഇതിനെ നേരിടുന്നതിനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നതിനിടെ കോൺഗ്രസ് ഇടതുപക്ഷ കക്ഷികൾ ടി

സി

എം കെ

പി തുടങ്ങിയ പ്രതിപക്ഷ കക്ഷികൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി മുദ്രാവാകൃം മുഴക്കുകയായിരുന്നു പ്രതിപക്ഷാംഗങ്ങളോട് ഇരിപ്പിടങ്ങളിലേക്ക് തിരികെ പോകണമെന്നും ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തരുതെന്നും സഭാദ്ധ്യക്ഷൻ എം വെങ്കയ്യ നായിഡു പല തവണ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം നിർത്തിയില്ല തുടർന്ന് സഭ ഇന്നത്തേക്ക് ബഹളം പിരിയുന്നതായി ശ്രീ

രാജ്യ്സ്ഭയിൽ എഴുതി തയ്യാറാക്കിയ മറുപടിയിലാണ് ഇക്കാര്യും അറിയിച്ചത്

സി